കേന്ദ്ര ആഭൃന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മൂന്നു ദിവസത്തെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് ഇന്ന് പുറപ്പെടും

രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് അഞ്ചുമാസത്തിനിടെ അഞ്ച് ശതമാനം ഉയർന്നു

ഊർജിത നടപടികൾ ആരംഭിച്ചു

എട്ടു വിക്കറ്റിന്റെ തകർപ്പൻ ജയം

ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുമായി ശ്രീ സിംഗ് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും ആഭ്യന്തരസുരക്ഷ അതിർത്തി സംരക്ഷണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ഗതാഗത സംവിധാനം എന്നീ വിഷയങ്ങളായിരിക്കും മുഖ്യമായും ചർച്ച ചെയ്യുക റോഹിങ്ക്യൻ അഭയാർത്ഥി പ്രശ്നവും ചർച്ച ചെയ്തേക്കും

സിങ്ങ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയേയും കാണുന്നുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമൊന്നിച്ച് ശ്രീ രാജ്നാഥ്സിംഗ് യമുന ഫീച്ചർ പാർക്കിലെ ഇന്ത്യൻ വിസാ കേന്ദ്രത്തിന്റെ ഉദ്ഘാട്ടനം നിർവ്വഹിക്കും നാളെ സർദാഹിൽ ബംഗ്ലാദേശ് പോലീസ് അ്ക്കാദമിയിലെ ബംഗ്ലാദേശ് ഇന്ത്യ സൌഹൃദ മന്ദിരത്തിന്റെ ഉദ്ദ്ഘാട്നം കേന്ദ്രമന്ത്രി നിർവ്വഹിക്കും ആറാമത് ഇന്ത്യ ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിതല സമ്മേളനം ഇരു രാജൃങ്ങളിലേയും ആഭ്യന്തക മീന്ത്രിമാരുടെ സംയുക്ത അധ്യക്ഷതയിൽ ഞായറാഴ്ച നടക്കും

സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ വർധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ നിബന്ധന

ഇന്നലെ ആർക്കിയോളജിക്കൽ സർവേയുടെ കേന്ദ്രമന്ദിരം ഉദ്ഘാടനം നിർവഹിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു

ആധുനിക കാലത്ത് എത്ര ദൂരെ നിന്നും ഏതു വസ്തുവിന്റെ ഫോട്ടോ പകർത്താനും സൌകര്യമുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന്റെ വെളിച്ചത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാന്മൂണ്ടായതെന്ന് കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ ട്വിറ്ററിൽ കുറിച്ചു

ജമ്മു കാശ്മീരിനെ ചൊല്ലി വിലപിക്കുന്ന പാകിസ്ഥാൻ ആദ്യം തങ്ങളുടെ മണ്ണിൽ നിന്ന് നടത്തുന്ന ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവേ വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പാകിസ്ഥാൻ പലപ്പോഴും പറയുന്നതല്ല പ്രവർത്തിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് സുതാര്യവും ദൃഡവുമാണെന്ന് ശ്രീ

ഐക്യരാഷ്ട്ര സഭയിലെ പാക് ഹൈക്കമ്മീഷണർ അടുത്തിടെ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയ്ക്കുള്ള മറുപടിയിലാണ് വിദേശകാര്യ വക്താവ് ഇത്തരത്തിൽ പ്രതികരിച്ചത്

റെയിൽവേയുടെ ഒന്നരലക്ഷം പാലങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ രേഖപ്പെടുത്തിയ ഐടി അധിഷ്ഠിത നിയന്ത്രണ സംവിധാനം ഇന്നലെ റെയിൽ മന്ത്രി പിയൂഷ് ഗോയൽ അവതരിപ്പിച്ചു പാലങ്ങളുടെ അവസ്ഥ വിശദവിവരങ്ങൾ അറ്റകുറ്റപ്പണികളുടെയും പരിശോധനയുടെയും വിവരങ്ങൾ പരിപാലനം തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേഷനുകൾ സൌന്ദര്യവത്ക്കരിച്ചതിനുളള പുരസ്കാരങ്ങളും ഇന്നലെ ന്യൂഡൽഹിയിൽ റെയിൽ മന്ത്രി വിതരണം ചെയ്തു

നബാർഡിന്റെ സ്ഥാപിക്കു ദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സെമിനാർ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏറ്റവും വേഗത്തിൽ ഉറപ്പാക്കുന്നതിനാണ് ഊന്നൽ നൽകേണ്ടത് വിവിധ സമ്മർദ്ദങ്ങൾ നേരിടുന്ന കാർഷിക മേഖല കൂടുതൽ നവീകരിക്കേണ്ടതുണ്ട് കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഫെഡറൽ വ്യവസ്ഥ ശക്തിപ്പെടുത്തി അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ജൂൺ മാസത്തിലെ കണക്കനുസരിച്ച് ഭക്ഷ്യമേഖലയിൽ വിലക്കുറവ് ഉണ്ടായപ്പോഴും പണപ്പെരുപ്പ നിരക്ക് അഞ്ച് ശതമാനം വർധന രേഖപ്പെടുത്തി

ബസുകളിൽ ഫിൽട്ടർ ഘടിപ്പിക്കൽ പൊടി വേർതിരിക്കാനുള്ള രാസവസ്തു അന്തരീക്ഷ മലിനീകരണം കണ്ടെത്താനുള്ള ഉപകരണം എന്നിവയാണ് പുതിയ സംവിധാനങ്ങൾ

വായു മലിനീകരണം തടയൽ നിയന്ത്രണം എന്നിവയാണ് പ്രധാനലക്ഷ്യമെന്ന് മന്ത്രാലയം അറിയിച്ചു അന്തരീക്ഷ വായുവിന്റെ ശുദ്ധി നില നിർത്തണം

മഹാശിവലിംഗ ദർശനം നടത്തി

അധ്യക്ഷൻ നടപ്പ് വോറ തീർത്ഥാടനകാലത്ത് ബാർത്താൽ പ്രദേശത്ത് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അഞ്ച് തീർത്ഥാടകർക്കും റോഡപക്ടത്തിൽപ്പെട്ട് മരിച്ച മൂന്ന് പേരുടെ ആശ്രിതർക്കും മൂന്നു ലക്ഷം രൂപ വീതം സഹായം പ്രഖ്യാപിച്ചു

ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഈ വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്ച ഇന്ത്യക്കാരിയാണ് ഹിമദാസ്

ആറു വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയുടെ കൂൽദീപ് യാദവ് ആതിഥേയരുടെ ബാറ്റ്സ്മാൻമാരെ കുഴക്കി

ആറു പന്തിൽ നിന്നാണ് കൂൽദീപ് ആറ് വിക്കറ്റ് വീഴ്ത്തിയത്

മ്യൂസിക് ഞായറാഴ്ച കപ്പുയർത്താനുള്ള കഠിന പരിശീലനത്തിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ഫ്രാൻസും ക്രൊയേഷ്യയും

നിലവിൽ മഴയുടെ തീവ്രത കുറയുന്നതായാണ് കാലാവസ്ഥാ സൂചന എന്നാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു